വളരെ കുറവെന്ന് ഐ സി എം ആർ ജാഗ്രതയിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും മുന്നറിയിപ്പ്

കാലാവസ്ഥാ നേതൃഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും

പുരോഗമിക്കുന്നു

ഐ പി എല്ലിൽ ഇന്ന് ബാംഗ്ലൂർ രാജസ്ഥാൻ പോരാട്ടം

കോവിഡ് മഹാമാരി ആരംഭിച്ചതിനുശേഷം ലോകത്ത് ഒരു രാജ്യത്തുണ്ടാകുന്ന ഏറ്റവും ഉയർന്ന പ്രതിദിന നിരക്കാണ് ഇന്ന് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത് രോഗമുക്തി നിരക്കും കുറയുകയാണ് വിശദാംശങ്ങളുമായി അഞ്ജു

ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന പ്രതിദിന നിരക്കാണിത്

പ്രതിദിനം ഉണ്ടാകുന്ന മരണസംഖൃയിലും ഇന്നലെ ഏറ്റവും ഉയർന്ന നിരക്ക് റിപ്പോർട്ട് ചെയ്തു

സി എം ആർ

വർദ്ധിക്കുന്നതിനാൽ കോവിഡ് വാക്സിനേഷൻ സെഷനുകൾ നടത്തുന്നതിന് മാർഗനിർദേശം പുറപ്പെടുവിച്ചതായും മന്ത്രി വൃക്തമാക്കി ഇന്ന് മുതൽ ഒന്നാമത്തേയും രണ്ടാമത്തേയും ഡോസുകൾ മുൻകൂട്ടിയുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ വഴി മാത്രമായിരിക്കും ലഭ്യമാകുക സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകില്ലെന്ന് ശ്രീമതി കെ

പ്പാക്സിനെടുത്തവരുടെ എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ കുറവാണെന്ന് ഐ സി

വാക്സിൻ സ്വീകരിച്ചാൽ അപകടം കുറയുകയും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുമെന്ന് ഡോ

പതിനായിരത്തിൽ പരമാവധി നാലു പേർക്ക് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കാറുള്ളത് എന്നാൽ വാക്സിനെടുത്തശേഷവും കോവിഡ് ജാഗ്രതാ മുൻകരുതലുകൾ കർശനമായി പാലിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡസ്ക് ആകാശവാണി

കോവിഡ് സാഹചരൃത്തെ തുടർന്ന് വിർചലായി നടക്കുന്ന ഉച്ചകോടിക്ക് അമേരിക്ക ആണ് നേതൃത്വം നൽകുന്നത് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അഭ്യർത്ഥിച്ച് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നേരത്തെ ശ്രീ

കാലാവസ്ഥാ വൃതിയാനവും അതിനുളള പരിഹാരവും സംബന്ധിച്ച് രണ്ട് ദിവസത്തെ സമ്മേളനത്തിൽ നേതാക്കൾ ആശയങ്ങൾ കൈമാറും

ഗുഡ്ഗാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ച്ചികിത്സയിലിരിക്കെ ആണ് അന്ത്യം ഡൽഹിയിൽ മാധ്യമപ്രപ്പ്വർത്തകനായിരുന്നു ആശിഷ് യെച്ചൂരിയുടെ നിര്യാണത്തിൽ അരാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുട്ടങ്ങീയവർ അനുശോചിച്ചു പിതാവ് സീതാറാം യെച്ചൂരിക്കയ്ച്ച് അനുശോചന സന്ദേശത്തിൽ കുടുംബത്തിന്റെ ദുഃഖ്വത്തിൽ പങ്കുച്ചേരുന്നതായി പ്രധാനമന്ത്രി കുറിച്ചു മുഖ്യമന്ത്രി പ്രിണറായി വിജയനും ആശിഷിന്റെ നിര്യാണത്തിൽ അഗാധമാ്യ ദുഃഖം രേഖപ്പെടുത്തി

ഇലക്ട്രോണിക് വോട്ടിങ് മെഷീന് പുറമെ വി

കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്

ലക്നൌവിൽ നിന്നുളള ചണ്ഡിഗഡ് എക്സ്പ്രസ് ട്രെയിൻ ലവൽ ക്രോസിനു സമീപം ട്രക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടം

അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുളള ഒരാൾ അപകടനില തരണം ചെയ്തതായാണ് റിപ്പോർട്ട് അപകടത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് യു

അപകടത്തിൽപ്പെട്ട ചണ്ഡിഗഡ് എക്സ്ട്രപ്രസിലെ യാത്രക്കാരെ അവരവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കാനുളള ക്രമീകരണവും അധികൃതർ സ്വീകരിച്ചു

കപ്പൽ മുങ്ങിയ സ്ഥലത്തിനിടുത്ത് എണ്ണചോർച്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് തിരച്ചിൽ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

സ്വർണവിലയിൽ വർദ്ധന

നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി പൂരവിളംബരം നടത്തിക്കൊണ്ട് തെക്കേ ഗോപുരനട തുറന്നതോടെയാണ് പൂരത്തിന് തുടക്കമായത് കോവിഡ് നിയന്ത്രണങ്ങളോടെ നാളെയാണ് തൃശൂർ പൂരം

നമ്മുടെ ഭൂമിയെ വീണ്ടെടുക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം ഭൂമിയെ കൂടുതൽ വൃത്തിയുള്ളതും സുസ്ഥിരവുമാക്കാൻ ് ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ഐക്യരാഷ്ട്ര സ്ഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ടിറ്ററിൽ കുറിച്ചു

കെ യിലേക്കും തിരിച്ചുമുള്ള വിമാന സർവ്വീസുകൾ ശനിയാഴ്ച മുതൽ നിർത്തി വയ്ക്കാൻ തീരുമാനിച്ചതായി എയർ ഇന്ത്യ അറിയിച്ചു ബ്രിട്ടൺ പുറ്ത്തിറക്കിയ പുതിയ നിയന്ത്രണങ്ങളുടെ ഭാഗമായാണ് ഈ മാസം അവസാനം വരെയുള്ള സർവ്വീസുകൾ റദ്ദാക്കുന്നത് സർവ്വീസുകൾ പുനരാരംഭിക്കുന്നതും പണം തിരികെ നൽകുന്നതും ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ പിന്നീട് ഉണ്ടാകുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു

ഇവരെ ഐസൊലേഷനിലാക്കി കൂടുതൽ പരിശോധന നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു